ഉപതിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു ശക്തമായ മഴ വോട്ടെടുപ്പിനെ ബാധിച്ചു

സാഹചര്യമില്ലെന്ന് മുഖ്യിതിർഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ സംസ്ഥാനത്ത് അഞ്ചു ദിവസം കൂടി ശക്തമായ മഴ ന് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏറ്റുമുട്ടും

മഞ്ചേശ്വരം ഒഴികെയുള്ള നാല് മണ്ഡലങ്ങളിലും പോളിംഗ് തടസ്സപ്പെടുത്തി പോളിംഗ് മന്ദഗതിയിലാണ് മഴ പലയിടത്തും ബൂത്തുകളിൽ വെള്ളം കയറി

വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായതിനെ തുടർന്നും ചിലയിടങ്ങളിൽ പോളിംഗ് തടസ്സപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി എറണ്ടാകുള്ത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി എൻ സി ജയചന്ദ്രൻ

സാഹചര്യം വിലയിരുത്തി വൈകിട്ട് ആറിന് ശേഷവും പോളിങ് സമയം നീട്ടിനൽകുന്ന കാര്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

അരൂരിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ

മഹാരാഷ്ട്രയിലെ സത്താരയിലും ബിഹാറിലെ സമസ്തിപ്പൂരിലുമാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്

എറണാകുളത്തേയ്ക്കുള്ള ആറ് പാസഞ്ചർ ട്രെയിനുകളും എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റിയും റദ്ദാക്കി

വേണാട് ഉൾപ്പെടെ മൂന്ന് ട്രെയിനുകൾ എറണാകുളം ടൌൺ വഴി തിരിച്ചുവിട്ടു നിരവധി ട്രെയിനുകൾ പുനക്രമീകരിച്ചു രണ്ട് മണിക്കൂറിനകം വെള്ളം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉടൻതന്നെ ഗതാഗതം പൂർണമായും പുനസ്ഥാപിക്കുമെന്നും റെയിൽവേ അറിയിച്ചു പിണറായി വിജയൻ ഗാന്ധിജിയെ ചരിത്രത്തിൽ നിന്ന് തമസ്ക്കാരിക്കാനുള്ള ശ്രമത്തിനു കേരളത്തിൽ ഇടമുണ്ടാവിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ മഹാത്മാഗാന്ധി രക്തസാക്ഷ്യം സ്മൃതി മണ്ഡപത്തിന് തറക്കല്ലിട്ടു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നവോഥാന വഴിയിലുള്ള പുരോഗതിയെ പിന്നോട്ടടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

അസ്റ്റോസീയേഷൻ അംഗങ്ങളെ ഓഹരി ഉടമകളാക്കിയാണ് സൊസ്സെറ്റീ പ്രൂപീകരിച്ചതെന്ന് സംഘം പ്രസിഡന്റ് എ പ്രേമൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ലക്ഷദ്വീപിലും മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്

ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാഹചര്യം ഉള്ളതിനാൽ മഴ കൂടുതൽ ശക്തമായേക്കും

നാളെ തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലെല്ലാം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

തീരമേഖലയിൽ ആവശ്യമായ സുരക്ഷാനടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കോട്ടയം മഴ ഇൻട്രോ കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു

സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏറ്റുമുട്ടും

ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു കായംകുളം കോട്ടയം റെയിൽപ്പാത കായംകുളം കോട്ടയം എറണാകുളം റെയിൽപ്പാതയിൽ ചിങ്ങവനം ഏറ്റുമാനൂർ ഭാഗത്തെ പാത ഇരട്ടിപ്പിക്കൽ ജനുവരിയിൽ തുടങ്ങുമെന്ന് റയിൽവേ അറിയിച്ചു വിട്ടു കിട്ടേണ്ട നാലും ഹെക്ടർ സ്ഥലത്തിൽ രണ്ടു ഹെക്ടർ റവന്യു അധികൃതർ ഏറ്റെടുത്ത് റയിൽവേക്ക് കൈമാറിയതോടെയാണ് പാത ഇരട്ടിപ്പിക്കലിന് വഴിതെളിഞ്ഞത് ശേഷിക്കുന്ന രണ്ട് ഹെക്ടർ ഡ്വിസംബറിൽ കൈമാറുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു

ബൈക്ക് യാത്രികരായ കച്ചേരിക്കടവ് മുടിക്കയത്തെ ബൈജു ജോണി ചരൾ സ്വദേശി സാജൻ എന്നിവരാണ് മരിച്ചത്

മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളജ് മോർച്ചറിയിലേക്ക് മാറ്റി

ഇന്ന് വൈകിട്ട് ദ ന് മണ്ണാറശാല ശ്രീ നാഗരാജ പുരസ്കാര വിതരണം നടക്കും

എസ് ആർ ഒ മുൻ ചെയർമാൻ ഡോ

രാധാകൃഷ്ണൻ പുരസ്കാര വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സന്ധ്യയ്ക്ക് മഹാദീപകാഴ്ച നടക്കും ബുധനാഴ്ചയാണ് പ്രസിദ്ധമായ മണ്ണാറശാല ആയില്യം

രാജ്യത്തിനെതിരെ കലാപം നടത്താൻ ആഹ്വാനം ചെയ്ത ീശേഷം വീട്ടിൽ നിന്നും അരിയും പലവ്യഞ്ജനങ്ങളും എടുത്ത് പോയതായി വീട്ടുകാർ പരാതിപ്പെട്ടു സംഭവത്തെ തുടർന്ന് യു എ

എ ആയുധ നിയമങ്ങൾ പ്രകാരവും മറ്റ് ഐ

സി വകപ്പുകൾ പ്രകാരവും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ആയുർവേദ സെമിനാർ ഗർഭാശയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിൽ കൂടി വരുന്നതായി കണ്ണൂരിൽ നടന്ന ആയുർവേദ സെമിനാർ മാറിയ ആഹാരശീലവും ജീവിത ശൈലിയുമാണ് ഇതിന് കാരണമെന്ന് സെമിനാർ വിലയിരുത്തി

പൊതു സമ്മേളനം മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്തു